അറസ്റ്റിലായ ഡി എസ് ദേവീന്ദർ പി സിംഗിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്തു

മുരളീധരൻ

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

ജമ്മുകശ്മീരിന്റെ സമഗ്രവികസനം ലക്ഷ്യമിട്ട് കേന്ദ്രഗവണ്മെന്റ് നടപ്പിലാക്കികൊണ്ടിരിക്കുന്നതും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതുമായ വിവിധ പദ്ധതികൾ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശം

സന്ദർശം സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ചീഫ് സെക്രട്ടറി വിലയിരുത്തി

പ്രീപെയ്ഡ് കണക്ഷൻ വഴി ശബ്ദത്തിലൂടെയും എസ്

എസിലൂടെയുമുള്ള ആശയ വിനിമയം മേഖലയിലാകെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് കണക്ഷനുകൾ നല്കുമ്പോൾ ഉപയോക്താക്കളുടെ വിശ്വാസ്യത അതത് സേവനദാതാക്കൾ ഉറപ്പു വരുത്തണം

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശ പ്രകാരം ഇയാൾക്കെതിരെ എൻ

എ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഭീകരവാദികളെ താഴ്വരയിൽ നിന്ന് മാറ്റുന്നതിനിടെയാണ് ദേവീന്ദർ സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്

ദക്ഷിണ കശ്മീരിലെ ദേശീയപാതയിൽ ഖാസിഗുണ്ടിന് സമീപത്ത് നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിരുന്നുവെന്ന് ജമ്മുകാശ്മീർ പോലീസ് വക്താവ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ജമ്മുകാശ്മീർ പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു

ദേശീയ സുരക്ഷ നിയമത്തിന്റെ കീഴിൽ ്ട്ദേശീയ സുരക്ഷയ്ക്കോ ക്രമസമാധാന പാലനത്തിനോ വിഘാതമാകുമെന്ന് സംശയമുള്ള ആളുകളെ മുൻകരുതൽ നുട്ട്പടിയെന്നോണം തടഞ്ഞുവയ്ക്കാനും കസ്റ്റഡിയിൽ എടുക്കാനുമുള്ള അധികാരമാണ് ഡൽഹി പോലീസിന് നൽകിയത്

എന്നാൽ ഇത് മൂന്ന് മാസത്തിലൊരിക്കൽ നടക്കുന്ന സ്വാഭാവിക നടപടി മാത്രമാണെന്നും നിലവിലെ സംഭവ വികാസങ്ങൾക്ക് ഇതുമായി ബന്ധമില്ലെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി

രണ്ട് പൂതുമുഖങ്ങളെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്

ഗുവാഹത്തിയിൽ രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ജഗ്ദീഷ് മുഖി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് രണ്ട് മന്ത്രിമാർ രാജി സമർപ്പിച്ചതാണ് മന്ത്രിസഭാ പുനഃസംഘടിപ്പിക്കാൻ കാരണം

ഉച്ചയോടു കൂടി പാക്ിസ്മാൻ നടത്തിയ മുക്കാൽ മണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണത്തിന് ശക്തമായ തിരിച്ചുടി നല്കിയതായി സൈനിക വ്ക്താട്ടവ് അറിയിച്ചു മറ്റൊരു സംഭവത്തിൽ ്ർജ്യാരി ജില്ലയിലെ നൌഷേറാ മേഖലയിലെ നിയന്ത്രണ രേഖയിലും ് പാകിസ്ഥാൻ സൈനൃത്തിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമില്ലാതെ ആക്രമണം ഉണ്ടായി ഇവിടെയും ഇന്തൃൻ സൈന്യം തിരിച്ചടി നല്കിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ഗവർണറുടെ നിലപാട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് എതിരാണെന്നും സത്യം ജനങ്ങൾ അറിഞ്ഞതിന്റെ ജാള്യത മറയ്ക്കാനാണ് കേരള ഗവൺമെന്റ് ഗവർണ്ണറെ എതിർക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു

ഇതിനെതിരെ മുഴുവൻ മുഖ്യമൃത്തിമാരും ജാഗ്രതയോടെ തീരുമാനങ്ങളെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

കർണാടകത്തിൽ എസ്സ്ഡിപിഐ നടത്തിവരുന്ന നിരവധി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗവൺമെന്റ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടി ചേർത്തു

ഹരിയാനയും ഡൽഹിയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കേരളം ആറാംസ്ഥാനത്താണ്

കേന്ദ്ര സഹമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മധ്യപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും സംഘത്തിൽ ഉൾപ്പെടുന്നു ലോക സാമ്പത്തിക സമ്മേളനത്തോടനുബന്ധിച്ച് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക റഷ്യ സൌദി അറേബ്യ സ്വിറ്റ്സർലൻഡ് കൊറിയ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി ശ്രീ

വിവിധ കമ്പനികളിലെ ചീഫ് എക്സിക്യൂട്ടിവുമാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കേന്ദ്രമന്ത്രി ഇന്ത്യൻ റെയിൽവേ മേഖലയിൽ ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിന് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലും സംബന്ധിക്കും

നിയമത്തിനു മുന്നിൽ കീഴ്ട്ങ്ങാതെ അപ്പീൽ സമർപ്പിക്കാൻ മുഷാറഫിന് അവകാശ്രമില്ലെന്ന് ചൂണ്ടികാട്ടിയാണ് കോടതി ഹർജി നിരസിച്ചത് ഇപ്പോൾ ദുബായിയിൽ കഴിയുന്ന പർവേസ് മുഷാറഫ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രത്യേക കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്

നെഹ്റു യുവ കേന്ദ്രയും പുതുച്ചേരി ഗവൺമെന്റും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ആദിവാസി യുവാക്കളുടെ പുരോഗതിയും ശാക്തീകരണവുമാണ് പരിപ്പാടിയുടെ ലക്ഷ്യം

ഇന്നലെയാണ് നത്കർണി അന്തരിച്ചത്